വിമാനം ഡെറാഡൂണിൽ നിന്ന് ന്യൂഡൽഹിയിൽ ഇറങ്ങി

കേരളത്തിൽ പ്രളയ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം കുട്ടനാട്ടിൽ സമഗ്ര ശുചീകരണ യജ്ഞത്തിന് നാളെ തുടക്കം

ഏഷ്യൻ ഗെയിംസ് വനിതാ ബാഡ്മിന്റണിൽ പി

സിന്ധു ഫൈനലിൽ സൈന നെഹ്വാളിന് വെങ്കലം

ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വി വി പാറ്റ് യന്ത്രം തുടങ്ങിയവയുടെ ഉപയോഗവും പ്രശ്നങ്ങളും യോഗം അവലോകനം ചെയ്തു മറ്റ് സുപ്രധാന വിഷയങ്ങളിലും കമ്മീഷൻ പാർട്ടികളുടെ അഭിപ്രായം തേടി ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോകുന്ന രീതി ആവശ്യമില്ലെന്ന് പല രാഷ്ട്രീയകക്ഷികളും വ്യക്തമാക്കിയതായി യോഗത്തിന് ശേഷം മുഖ്യതിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ

കക്ഷികൾ ഉന്നയിച്ച എല്ലാ നിർദ്ദേശങ്ങളും കമ്മീഷൻ പരിശോധ്ലിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു വരുന്ന ലോക്സഭാ നിയമസഭ്യി തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം

തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുരക്ഷിതമാക്കാനാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ കൊണ്ടു വന്നത് എന്നാൽ ഇത് സുതാരൃമായിരിക്കണമെന്നും പാർട്ടി വക്താവ് അഭിഷേക് മനു സിങ്വി പറഞ്ഞു

സേവന മേഖലയിലും വാണിജ്യ രംഗത്തുമാണ് ഈ വർഷം കൂടുതൽ പ്രോത്സാഹനം ലഭിച്ചത്

എല്ലാ ഗവൺമെന്റ് ആശുപത്രികളേയൂട് പ്രദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് മന്ത്രി ജെ

മൂന്ന് പേരെ കോടതി വെറുതെ വിട്ടു

ആദ്യ വിമാനം ഉച്ചയോടെ ന്യൂഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി കൂടുതൽ വിവരങ്ങളുമായി ലിഖിത ഡെറാഡൂൺ വിമാനത്താവളത്തിൽ നിന്നുള്ള പരീക്ഷണപറക്കൽ വിമാനത്തെ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി സുരേഷ് പ്രഭു ധർമ്മേന്ദ്ര പ്രധാൻ ഡോ ഹർഷവർദ്ധൻ ജയന്ത് സിൻഹ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ബദൽ ഇന്ധന പരീക്ഷണത്തിലെ സുപ്രധാന ചുവടു വയ്പാണിതെന്ന് കൃകേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ട്ടിറ്ററിൽ അറിയിച്ചു

പരിസ്ഥിതി സൌഹൃദ ഇന്ധനമെന്ന ലക്ഷ്യം പ്രിയാഥാർത്ഥ്യമാക്കാൻ ജൈവ ഇന്ധനത്തിന് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി് സുരേഷ് പ്രഭു അഭിപ്രായപ്പെട്ടു

ഇന്ധന ഇറക്കുമതി ചെലവ് ഗണ്യമായി കുറയ്ക്കാനാവുമെന്ന് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ അഭിപ്രായപ്പെട്ടു സമുദ്രയാന മേഖലയിൽ മെത്തനോളിന്റെ സാധ്യത ഗവൺമെന്റ് പരിശോധിച്ച് വരികയാണെന്ന് ഉപരിതല ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു

ഹാനോയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ സുഷമ സ്വരാജ് അനാവരണം ചെയ്തു വിയറ്റ്നാം കംബോഡിയ എന്നീ രാജ്യങ്ങളിൽ അഞ്ച് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ശ്രീമതി

ബുധനാഴ്ച കംബോഡിയയിലേക്കു പോകുന്ന സുഷമ സ്വരാജ് കംബോഡിയൻ വിദേശകാര്യ മന്ത്രി പ്രാക് സോഖോന്നു മായി ഉഭയകക്ഷി ചർച്ച നടത്തും

സുഷമസ്വരാജിന്റെ ആദ്യ കംബോഡിയ സന്ദർശനമാണിത്

പ്രകൃതിക്ഷോഭത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും അർഹമായ നഷ്ടപരിഹാരം ഉടൻ നല്കുമെന്ന് മന്ത്രി ഇ

നഷ്ടം വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്

ഇക്കാരൃത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് റവന്യൂമന്ത്രി നിർദ്ദേശിച്ചു

സദാശിവം ഒരുമാസത്തെ ശമ്പളം സംഭാവന നൽകി

ലോക രണ്ടാം നമ്പർ താരം ജപ്പാന്റെ അകാനെ യെമാഗുച്ചിയെയാണ് സിന്ധു പരാജയപ്പെടുത്തിയത് കൂടുതൽ വിവരങ്ങളുമായി ലിഖിത ഒന്നിനെതിരെ രണ്ട് സെറ്റുകൾക്ക് കീഴടക്കിയാണ് ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവു കൂടിയായ സിന്ധുവിന്റെ ഫൈനൽ പ്രവേശം

ഇതോടെ സിന്ധു വെള്ളി മെഡൽ ഉറപ്പാക്കി ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം ബാഡ്മിന്റൺ സിംഗിൾസിൽ ഫൈനലിൽ എത്തുന്നത് നാളെ നടക്കുന്ന ഫെനലിൽ ചൈനീസ് തായ്പേയിയുടെ തായ് സൂ ചിങ്ങാണ് സിന്ധുവിന്റെ എതിരാളി

കഴിഞ്ഞ മാസം നടന്ന ലോക ബാഡ്മിന്റൺ ചാമ്പൃൻഷിപ്പിലും സിന്ധു ഫൈനലിൽ കടന്നിരുന്നു അതേസമയം ഇന്ത്യയുടെ സൈനാ നെഹ്വാൾ സെമിയിൽ തോറ്റു പുറത്തായി ചൈനയുടെ ലോക ഒന്നാം നമ്പർ താരം തായ് സു യിങ്ങാണ് നേരിട്ടുള്ള സെറ്റുകൾക്ക് സൈനയെ പരാജയപ്പെടുത്തിയത് സൈനയുടെ പോരാട്ടം വെങ്കല മെഡലിൽ അവസാനിച്ചു

നിലവിലെ വൃവസ്ഥകൾ പുനഃപരിശോധിക്കാൻ കഴിഞ്ഞ മാസമാണ് കേന്ദ്രം സമിതി രൂപീകരിച്ചത് ഗുരുതരമായ കുറ്റകൃത്യത്തിന് നിലവിലുള്ള കഠിനശിക്ഷാ വൃവസ്ഥകൾ അതേപടി തുടരണമെന്ന് സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്

കായിക മേഖലയുടെ പ്രോത്സാഹനം ലക്ഷ്യമാക്കിയാണ് നയം ആവിഷ്കരിച്ചിട്ടുള്ളത് കായികവിനോദം ശാരീരിക ആരോഗ്യം മത്സരപ്രാവീണ്യം സാമൂഹിക സൌഹാർദ്ദം എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്

ഇത് സംബന്ധിച്ച പാർലമെന്ററി സ്ഥിരം സമിതിയാണ് അഭിപ്രായങ്ങൾ ക്ഷണിച്ചത്